ഇന്നലെ നടന്ന അവ

വോട്ടെണ്ണൽ വ്യാഴാഴ്ച

ഫലങ്ങൾ കേരളത്തിൽ യു ഡി എഫിന് മുൻതൂക്കം ഹയർസെക്കന്ററി പ്തസ് വൺ പ്രവേശന ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു

വോട്ടെണ്ണൽ വ്യാഴാഴ്ച നടക്കും

പശ്ചിമബംഗാളിലെ അക്രമ സംഭവങ്ങൾ ഒഴിച്ചുനിർത്തിയാൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു

ചന്ദോലി ലോക്സഭാ മണ്ഡല ത്തിലെ താരാജവാൻപൂർ ഗ്രാമത്തിൽ വോട്ട് ചെയ്യുന്നതിനുമുമ്പ് ദളിത് വോട്ടർമാ രുടെ വിരലിൽ മഷി പുരട്ടിയെന്ന പരാതിയിൽ പൊലീസ് കേസെടുത്തു

തമിഴ്നാട്ടിലെ വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തി ലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിരിക്കയാണ്

കണ്ണൂർ കാസർഗോഡ് ലോക് സഭാ മണ്ഡലങ്ങളിലെ ഏഴ് ബൂത്തുക ളിൽ ഇന്നലെ നടന്ന റീ പോളിംഗ് സമാധാനപരം

പിലാത്തറ പുത്തൂരിൽ കോൺഗ്രസ് ബൂത്ത് ഏജന്റിന്റെയും സി

നഗറിൽ ഒരു സ്ത്രീയുടെ വീടിന് നേരെയുമാണ് ബോംബേറുണ്ടായത് ആർക്കും പരിക്കില്ല

നരേന്ദ്രമോദി ഗവൺമെന്റ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്ന് വോട്ടെടുപ്പ് പൂർത്തിയായതിനെ തുടർന്ന് വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു

എസ് പി ബി എസ് പി സംഖ്യം വൻ മുന്നേറ്റം നടത്തുമെന്ന് ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നു

ബംഗാളിലും ഒഡീഷയിലും ബി ജെ പി വൻ നേട്ടമു ണ്ടാക്കുമെന്നും പ്രവചിക്കുന്നുണ്ട്

കേരളത്തിൽ യു ഡി എഫ് മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് എക്സിറ്റ്പോ ളുകളുടെ പ്രവചനം എന്നാൽ എൽ ഡി എഫ് മുൻതൂക്കം നൽകുന്ന പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു

മോദിയുടെ നേതൃത്വത്തിന് അനുകൂലമായി വൻതോതിൽ വോട്ട് ലഭിച്ചുവെന്നാണ് പ്രവചനം കാണിക്കുന്നതെന്ന് പാർട്ടി വക്താവ് ജി

നരസിംഹറാവു ന്യൂഡൽഹിയിൽ പറഞ്ഞു

എക്സിറ്റ്പോൾ ഗോസിപ്പിൽ വിശ്വസിക്കുന്നില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാബാനർജി പറഞ്ഞു

തമിഴ്നാട്ടിലെ നാലും കർണ്ണാടകയിലെ രണ്ടും ഗോവയിലെ ഒന്നും നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു

പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധി വെള്ളിയാഴ്ച പ്രതിപക്ഷ പാർട്ടിക ദ്ദ ളുടെ യോഗം വിളിച്ചു ചേർത്തു

ടി ഡി പി എൻ സി പി ഇടതുപാർട്ടികൾ ആർ ജെ ഡി തുടങ്ങിയ പാർട്ടികളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് രാജ്യത്തെ രാഷ്ട്രീയസ്ഥിതി യോഗം ചർച്ച ചെയ്യും ് ് ് ് ് ് ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അപ്പപ്പോൾ ആകാശവാണി ജനങ്ങ ളിലെത്തിക്കും ഇതിനായി പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും ഫ്ളാഷ് ബുള്ളറ്റി നുകളും പ്രക്ഷേപണം ചെയ്യും തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്ന പാനൽ ചർച്ചയും സംഘടിപ്പിക്കുന്നുണ്ട്

ഹയർസെക്കൻ്ററി പ്രവേശന ഏകജാലക സംവിധാന വെബ് സൈറ്റിൽ അപേക്ഷാനമ്പറും ജനനതിയ്യതിയും നൽകി പ്രിശോധിക്കാം തിരുത്ത ലുകൾക്ക് നാളെ വൈകീട്ട് നാലുവരെ സമയം നൽകിയിട്ടുണ്ട് പ്രഖ്യാപിച്ചതിലും ഒരു ദിവസം നേരത്തെയാണ് ഹയർസെക്കന്റി ഡയറക്ട്രേറ്റ് ട്രയൽ അലോട്ട്മെന്റ പ്രസിദ്ധീകരിച്ചത്

പരീക്ഷണങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ഒരുക്കാൻ കൈറ്റ് സംവിധാനമേർപ്പെടുത്തി സ്വതന്ത്ര സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുമായ എക്സ്പൈസ് എന്ന ലാപ്ടോ പ്പുകളോട് കണക്ട് ചെയ്യാവുന്ന ചെറിയ ഉപകരണം വഴിയാണ് ഇത് സാധ്യമാക്കു ന്നത് ഈ വർഷം ഗണിതത്തിന് പുതുതായി വരുന്ന ഗണിത ഐ ടി ലാബുകൾക്ക് പുറമെയാണ് ഭൌതിക ശാസ്ത്രത്തിന് എക്സ്പൈസ് എന്ന പുതിയ സംവിധാനം വിദ്യാലയങ്ങളിലെത്തുന്നത് ് ് ് ് ് ് ് കോയമ്പത്തൂരിൽ ദേശീയ യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കേരളം സെമിയിൽ പുരുഷ വിഭാഗത്തിൽ പഞ്ചാ ബിനെയും വനിതാവിഭാഗത്തിൽ യു പിയേയുമാണ് കേരളം തോല്പിച്ചത് ് ് ് ് ് ് ് പൈതൃക ടൂറിസം കേന്ദ്രമായി ഒരുങ്ങുന്ന കൊച്ചിയിലെ ട്രൈബൽ കോംപ്ലക്സ് മന്ത്രി എ

ബാലൻ സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരു ത്തി പട്ടിക വർഗ്ഗക്കാർ ഉത്പാദിപ്പിക്കുന്ന ഉൽപന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ എട്ട് ഷോപ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്

ശൃകത വർദ്ധിച്ചിരിക്കുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ സുരക്ഷയും പരി പാലനവും അത്യാവശ്യമായ കാലമാണിതെന്നും മന്ത്രി ഇ

സീനിയർ സിറ്റിസൺ സർവ്വീസ് കൌൺസിൽ ജില്ലാ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ് ് ് ് ് ് ജീവിത പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ പാർട്ടി പ്രവർത്ത കർ തയ്യാറാകണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാല കൃഷ്ണൻ കാസർകോട് കൊടക്കാട് പറഞ്ഞു മോദി ഭരണം അവസാനിപ്പിക്കാൻ എല്ലാവരും യോജിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പർദ്ദ ധരിച്ചെത്തുന്നവർക്ക് ിനേരെ വ്യാപകമായി പരിശോധനയും നടപടിയും ഉണ്ടാവുമെന്ന് ഭീഷണി പ്പെടുത്തി സ്ത്രീകളെ പോളിംഗ് ബൂത്തിൽനിന്ന് അകറ്റി നിർത്തുകയെന്നതായിരുന്നു സി

എം തന്ത്ര മെന്നും റീപോളിംഗിൽ ഈ ദുഷ്ടലാക്ക് വിലപ്പോയി ല്ലെന്നും മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് കോഴിക്കോട്ട് പറഞ്ഞു സംഘടിത കള്ളവോട്ട് കയ്യോടെ പിടികൂടിയപ്പോൾ വസ്ത്രധാരണ ത്തെയും ആചാരത്തെയും മോശമായി ചിത്രീകരിച്ച് വഴിതിരിച്ചുവിടാനാണ് സി

എം ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

കക്ഷിരഹിത സ്ഥാനാർഥിക്ക് നേരെയു ണ്ടായ ആക്രമണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിക്കണമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി

തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടക്ക് മൂന്ന് തവണയാണ് നസീർ കൈയ്യേറ്റത്തിന് വിധേയനായതെന്നും ഇടത് ഭരണത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കില്ലെന്ന് ബോധ്യമുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു

ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ചവർ ക്കെതിരെ കർക്കശ നടപടി വേണമെന്ന് അഖില കേരള കത്തോലിക്കാ കോൺഗ്രസ് ആവശൃപ്പെട്ടു സഭാ സിനഡിന്റെ ട തീരുമാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശ്യശുദ്ധിയിൽ സംശയമു ണ്ടെന്നും കത്തോലിക്കാ കോൺഗ്രസ് നേതൃത്വം ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു

കോഴിക്കോട് കക്കാടംപൊയിലിൽ കരിമ്പുകോളനിക്ക് സമീപം ആദിവാസി യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി പൊലീസ് അന്വേഷണം തുടങ്ങി പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകു കയുളളൂവെന്നും പോലീസ് പറഞ്ഞു അരീക്കോട് വെറ്റിലപ്പാറ സ്വദേശി ഹരിദാസനെയാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്

കുട്ടനാട്ടിലെ നെടുമുടിയിൽ തോട്ടം നിനയ്ക്കുന്നതിനിടെ ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു

കൊല്ലം കരുനാഗപ്പള്ളിയിൽ മദ്യപിച്ച ആൾ ഓടിച്ച കാർ ബൈക്കിലിടിച്ച് യുവാവ് മരിച്ചു

ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ എറണാകുളത്തെ സ്ഥകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി പതിനൊന്നരയോടെ ദേശീയപാതയിൽ അമ്പാടിമുക്കിൽ ആയിരുന്നു അപകടം

കോഴിക്കോട് നഗരത്തിൽ വർധിച്ചുവരുന്ന വാഹനാ പകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സിറ്റി പൊലിസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മുതൽ എല്ലാ ദിവസവും സ്പെഷ്യൽഡ്രൈവ് നടത്തും ഓരോ ദിവസവും പ്രത്യേക സമയം നിശ്ചയിച്ച് നഗരത്തിലെ ഭൂരിഭാഗം പൊലിസ് ഉദ്യോഗസ്ഥരും ഡ്രൈപിൽ പങ്കാളികളാകും

കയ്യേറാനുള്ള ശ്രമം ദേവികുളം സബ്കളക്ടറുടെ നേതൃത്വത്തിൽ തടഞ്ഞു കണ്ണൻ ദേവൻ കമ്പനിയുടെ കൈവശമുള്ള ഭൂമി റവന്യൂ അധീനതയിലുള്ളതാണെന്ന് തെറ്റി ദ്ധരിച്ചാണ് കയ്യേറാൻ ശ്രമിച്ചതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക വിലയിരു ത്തൽ

മീനങ്ങാടി പഞ്ചായത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം ശേഖരിച്ചത്